സൌദിയിൽ മൂന്നു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ടെങ്കിലും വന്ദേഭാരത് മിഷനിൽ അനുവദിച്ച വിമാനങ്ങൾ വളരെ കുറവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

രമേ കോവിഡ് കണക്കിലെടുത്ത് പ്രവാസികളെ വിമാന മാർഗ്ഗം നാട്ടിൽ തിരിച്ചെത്തിക്കുന്ന വന്ദേഭാരത് മിഷൻ നാലാം ഘട്ടത്തിന് തുടക്കമായി

ദേദ കോവിഡ് സമൂഹ വ്യാപനം തടയാൻ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കായി പൊതുഭരണ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഓഫീസിൽ സാമൂഹിക അകലം പാലിച്ച് ജോലി ചെയ്യാൻ സൌകര്യമില്ലെങ്കിൽ ഗ്രൂപ്പ് സി ഡി വിഭാഗം ജീവനക്കാർ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഓരോ ആഴ്ച ഇടവിട്ടോ ഹാജരായാൽ മതിയെന്ന് ഉത്തരവിൽ പറയുന്നു

ഹോട്ട്സ്പോട്ടിൽ നിന്നും വരുന്നവർക്ക് ഇളവു നൽകാം സമൂഹവ്യാപനം തടയുന്നതിന് കൂടുതൽ പ്രദേശങ്ങൾ അടച്ചിടാനും സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു വാർഡ് അടിസ്ഥാനത്തിലാകും നിയന്ത്രണങ്ങൾ റോഡുകൾ അടയ്ക്കാനും അത്യാവശ്യ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനും ജില്ലാഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകാം ദര സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർ കോവിഡ് രോഗമുക്തരായി

രുമ കോവിഡ് രോഗബാധ വർധിക്കുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ പരിശോധനയ്ക്കായി സ്രവ കൂടുതൽ കേന്ദ്രങ്ങളൊരുക്കി

സുരേഷ്ബാബു

രുമ ഉറവിടമറിയാത്ത രണ്ട് കേസുകൾ കൂടി ഇന്നലെ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതായി മേയർ കെ

പാളയം സാഫല്യം കോംപ്പക്സിൽ ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളിയായ അസം സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോപ്ലക്സ് ഒരാഴ്ച്ചത്തേക്ക് അടച്ചിടുമെന്നും മേയർ പറഞ്ഞു

ആൾക്കൂട്ടം കുറക്കുന്നതിനായി പാളയം മാർക്കറ്റുകളിലും നഗരത്തിലെ മാളുകളിലെ സൂപ്പർ മാർക്കറ്റുകളിലും മാത്രമായി നഗരസഭ ഏർപ്പടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ നഗരത്തിലെ തിരക്കുള്ള മുഴുവൻ സൂപ്പർ മർക്കറ്റുകളിലേക്കും മറ്റ് മാർക്കറ്റുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മേയർ പറഞ്ഞു രുമ കൊല്ലം ജില്ലയിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേർ ഉൾപ്പടെ ഒൻപത് പേർക്കാണ് ഇന്നലെ കൊവിഡ് സ്ഥിരീകരിച്ചത് അതേസമയം കൊവിഡ് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കായംകുളം സ്വദേശിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് അധികൃതർ അറിയിച്ചു

അതേ സമയം നെടുമ്പന ഗ്രാമ പഞ്ചായത്തിലെ പള്ളിമൺ വാർഡിനെ കണ്ടെയിൻമെന്റ്സോണാക്കി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി

മൂന്നു പേർ വിദേശത്തുനിന്നും അഞ്ചു പേർ മറ്റു സംസ്ഥാനങ്ങളിൽനിന്നും എത്തിയവരാണ്

രുമ വിദേശ രാജ്യങ്ങളിൽ നിന്നും ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഒമ്പത് പേർക്കാണ് കണ്ണൂർ ജില്ലയിൽ കോവിഡ് രോഗം ബാധിച്ചത്

തലശ്ശേരി തളിപറമ്പ് പാനൂർ നഗരസഭകളിലെയും ചെറുകുന്ന് പഞ്ചായത്തിലെയും ഓരോ വാർഡാണ് കണ്ടയിൻമെന്റ് ആയത് രുര കണ്ണൂർ ജില്ലയിലെ വിവിധ സേനാ ക്യാമ്പുകളിൽ കൊവിഡ് പ്രതിരോധത്തിന് ആരോഗ്യ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ജില്ലാ കലക്ടർ ടി

ജില്ലയിലെ വിവിധ സേനാ വിഭാഗ മേധാവികൾക്ക് ഇക്കാര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചതായും കലക്ടർ അറിയിച്ചു

രുദ ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻവർധന

ആദ്യമായാണ് പ്രതിദിന രോഗികളുടെ എണ്ണം രണ്ട് ലക്ഷം കവിയുന്നത്

സി അംഗീകാരം നൽകി

ഐ വിമാനങ്ങൾ വാങ്ങും രുദ കടൽ കൊലക്കേസിൽ ഇന്ത്യയ്ക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന് അന്താരാഷ്ട്ര ആർബിട്രേഷൻ ട്രൈബ്യൂണൽ വിധി പ്രഖ്യാപിച്ചു

കൊല്ലം മുദാക്കര സ്വദേശി ജലസ്റ്റിൻ കന്യാകുമാരി സ്വദേശി അജീഷ് ബിങ്കി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മീൻപിടുത്ത ബോട്ടിലെ ജീവനക്കാർ നേരിട്ട ജീവഹാനി ശാരീരിക ഉപദ്രവം വസ്തു നാശം ധാർമിക ക്ഷതം എന്നിവയ്ക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും ഇതു സംബന്ധിച്ച് ഇന്ത്യയും ഇറ്റലിയും ചർച്ചചെയ്ത് തീരുമാനമെടുക്കുകയും കരാർ ഉണ്ടാക്കുകയും വേണമെന്നും വിധിയിൽ വ്യക്തമാക്കി

എട്ടു രൂപയാണ് മിനിമം ചാർജ് മിനിമം ചാർജിൽ യാത്ര ചെയ്യാവുന്ന ദൂരം അഞ്ച് കിലോമീറ്ററിൽ നിന്ന് രണ്ടര കിലോമീറ്ററായി കുറച്ചു

രേര ആലപ്പുഴയിൽ ആൻജിയോഗ്രാം ചെയ്യുന്നതിനിടെ കത്തീറ്റർ തറച്ചുകയറി വീട്ടമ്മ മരിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു ചിങ്ങോലി സ്വദേശി ബിന്ദു തട്ടാരമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാപിഴവിനെ തുടർന്ന് മരിച്ചെന്നാണ് ആക്ഷേപം മുപ്പത് ദിവസത്തിനകം ഡി

എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ സംഭവം അന്വേഷിക്കണമെന്ന് കമ്മീഷൻ അംഗം പി മോഹനദാസ് ഉത്തരവിട്ടു രുര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സൻസദ് ആദർശ് ഗ്രാമയോജന യിൽ സാഗി ഫേസ് രണ്ടിൽ ഉൾപ്പെടുത്തി പൂയപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രഖ്യാപനം നടത്തി